രാജ്യമെങ്ങും ശുചിത്വ ലഹരി വിരുദ്ധ പരിപാടികൾ കോൺഗ്രസ് പ്രവർത്തകസമിതി യോഗം ഇന്ന് വാർധ യിലെ സേവാഗ്രാം ആശ്രമത്തിൽ അന്തരിച്ച വയലിനിസ്റ്റും സംഗീത് സംവിധായകനുമായ ബാലഭാസ്കറിന്റെ സംസ്കാരം നാളെ ഉച്ച കഴിഞ്ഞ് തിരു മലയിലെ വീട്ടുവളപ്പിൽ

പി രാമകൃഷ്ണൻ ബ്രൂവറിക്കെ തിരായ് ആരോപണത്തിന് പിന്നിൽ മദ്യലോബിയാ ണെന്ന് മന്ത്രി എ കെ ബാലൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇൻസ്ട്ര മെന്റ് ലാൻഡിംഗ് സംവിധാനം പരിശോധിക്കാൻ പരീ ക്ഷണ പറക്കൽ നടത്തി

ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രപിതാവിന് പ്രമുഖർ സ്മരണാഞ്ജലി അർപ്പിച്ചു

രാജ്യമെങ്ങും ശുചിത്വ ലഹരിവിരുദ്ധ പരിപാടികളോടെയാണ് ദിനാചരണം മഹാത്മാഗാന്ധി സ്വയം വരിച്ച മൂല്യങ്ങളായ സമാധാനം സാഹോദരൃം സഹവർത്തിത്വം രാഷ്ട്രവികസനം തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് പുനരർപ്പണം നടത്താമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഗാന്ധിയുടെ സന്ദേശത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ടെന്നും നമ്മുടെ മാർഗ്ഗദീപമായി അദ്ദേഹം തുടരുമെന്നും രാഷ്ട്രപതി ടിറ്ററിൽ പറഞ്ഞു മഹാത്മാഗാന്ധിയെക്കുറിച്ച ശ്രേഷ്ഠചിന്തകൾ ലോകത്തെ ദശ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശക്തി പകരുന്നതാണെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മറ്റുള്ളവർക്കുവേണ്ടി ജീവിക്കു കയും ലോകത്തെ മെച്ചപ്പെട്ട സ്ഥലമാക്കി മാറ്റുകയും ചെയ്ത ഗാന്ധിജി ധൈര്യശാലിയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും അദ്ദേഹ ത്തിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കും ശക്തിയുടെയും ലാളിതൃത്തിന്റെയും ഗോപുരമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഡൽഹി യിലെ ഗാന്ധി സമാധി സ്ഥലമായ രാജ്ഘട്ടിലിലെത്തിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും യു

എ ചെയർപേഴ്സൺ സോണിയാ ഗാന്ധിയും രാജ്ഘട്ടിലെത്തി മഹാ ത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അവരോടൊപ്പമുണ്ടായിരുന്നു സത്യവും അഹിംസയുമാണ് രാജ്യത്തിന്റെ അടിത്തറയെന്നും ഇതിനുവേണ്ടിയാണ് മഹാത്മാഗാന്ധി ജീവിക്കുകയും മരിക്കു കയും ചെയ്തതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു യഥാർത്ഥ രാജ്യസ്നേഹികൾ ഈ മൂല്യങ്ങൾ സംര ക്ഷിക്കണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു വർഗ്ഗീയതക്കെതിരെ ഗാന്ധിജി സ്വീകരിച്ച നിലപാടുകൾക്ക് കാലിക സാഹചരൃത്തിൽ പ്രസക്തി ഏറുകയാണെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗാന്ധി ജയന്തി വാരാഘോഷ ത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വർഗ്ഗീയതക്കെ തിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഗാന്ധിജി സ്വീകരിച്ച തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്രളയദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി പുനഃസ്ഥാപനം ശുചീകരണം തുടങ്ങിയവയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ പ്രാമുഖ്യം നൽകു ന്നത് സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു

രാജ്യത്ത് നിലനിൽക്കുന്ന ഭയ ത്തിനും വെറുപ്പിനും കലാപത്തിനുമെതിരായ സന്ദേശം ജന ങ്ങൾക്ക് കൈമാറാനാണ് മഹാത്മജിയുടെ വാർധാ ആശ്രമത്തിൽ പരിപാടികൾക്ക് തുടക്കമിടുന്നതെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ അറിയി ച്ചു പ്രാർത്ഥനായോഗവും സമാധാന മാർച്ചും പൊതുയോഗവും സേവാഗ്രാം ആശ്രമത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമാധാന സന്ദേശം നൽകും

സമാധാനവും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് അമേരിക്കയിലെ പരമോ ന്നത പുരസ്കാരമായ കോൺഗ്രഷനൽ സ്വർണ്ണമെഡൽ മഹാ ത്മാഗാന്ധിക്ക് മരണാനന്തര ബഹുമതിയായി നൽകണമെന്ന് അമേരിക്കൽ ജനപ്രതിനിധി സഭയിലെ അംഗങ്ങൾ ആവശ്യപ്പെ ട്ടു

നാല് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ആറു പേർ ഇതിനെ പിന്താങ്ങി

രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി യിലെ വിജയ്ഘട്ടിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും യുദ്ധകാലത്തെ നേതൃത്വവും ഹരിത വിപ്ലവത്തിലെ പങ്കും രാജ്യത്തിന് എക്കാലത്തും പ്രചോദ നമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

റിച്ചാർഡ് ഹേ എംപി ഫ്ളാഗ് ഓഫ് ചെയ്തു അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിന്റെ മൃതദേഹം നാളെ ഉച്ചക്ക് രണ്ടുമണിക്ക് ശേഷം തിരുമലയിലെ വീട്ടുവളപ്പിൽ നട ക്കും ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളജിലേക്ക് കൊണ്ടുപോയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പൊതുദർശനത്തിന് വെക്കാൻ തിരുവനന്തപുരം യൂനിവേഴ്സിറ്റി കോളജിൽ എത്തിച്ചു തുടർന്ന് ഉവെകീട്ട് നാലര മുതൽ കലാഭവനിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം പിന്നീട് പൂജപ്പുരയിലെ വസതിയിലേക്ക് മാറ്റും ബാല ഭാസ്കറിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് രാവിലെ മുതൽ നൂറുക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപെടുകയായിരുന്നു ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി അപകട ദിവസം തന്നെ മരിച്ചു ഗുരതരമായി പരുക്കേറ്റ ബാല ഭാസ്കർ തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ച ഒരു മണിയോടെയാണ് വിടവാങ്ങിയത് അപകടത്തിൽ പരുക്കേറ്റ ബാല ഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ചികിത്സയിൽ കഴിയുകയാണ്

മലയാളികൾ ഞെട്ടലോടെയാണ് ഈ ദുഃഖ വാർത്ത ശ്രവിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉപകരണ സംഗീത ത്തിന്റെ വിസ്മയ സാധ്യതകൾ തെളിയിച്ച സംഗീത ലോകത്തിന് പ്രതിഭാധനനായ കലാകാരനെയാണ് ബാലഭാസ്കറിന്റെ വിയോഗം മൂലം നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയലിനിസ്റ്റ് ബാല ഭാസ്കറിന്റെ അകാല വേർപാട് ഏറെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വളരെ ചെറിയ പ്രായ ത്തിൽ തന്നെ സംഗീതത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ ബാല ഭാസ്കറിൽനിന്നും ഇനിയും കനപ്പെട്ട സംഭാവനകൾ മലയാളി കൾ പ്രതീക്ഷിച്ചിരിക്കെയാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്ത തെന്നും അദ്ദേഹം പറഞ്ഞു ഫ്യൂഷൻ സംഗീതത്തിന് പുതിയ മുഖവും ആസ്വാദനതലവും നൽകിയ സംഗീതജ്ഞൻ കൂടിയാ യിരുന്നു ബാലഭാസ്കറെന്നും ചെന്നിത്തല അനുസ്മരിച്ചു ബാലഭാസ്കറിന്റെ മരണം നികത്താനാവാത്ത നഷ്ടമാണെന്ന് ഗായകൻ കെ

സംഗീതത്തെ അത്ര മാത്രം സ്നേഹിച്ചിരുന്ന വൃക്തിയായിരുന്നു അദ്ദേഹമെന്ന് യേശു ദാസ് പറഞ്ഞു സംഗീതത്തെ ജീവവ്രതമായി സ്വീകരിച്ച കലാകാരനെയാണ് ബാലഭാസ്കറിന്റെ നിര്യാണത്തോടെ കേരളക്കരക്ക് നഷ്ടമായത് മൂന്നാം വയസ്സിൽ വയലിനിൽ ഈണമിട്ടു തുടങ്ങിയ ബാലഭാസ് കർ പിന്നീട് വയലിനിന്റെ ലോകം തന്നെ കീഴടക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ സികെ ഉണ്ണി ശാന്തകുമാരി ദമ്പതികളുടെ മകനായാണ് ബാലഭാസ്കറിന്റെ ജനനം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ബന്ധുകൂടിയായ ബി

യൂനിവേഴ് സിറ്റി പഠന കാലത്ത് കൺഫ്യൂഷൻ എന്ന പേരിൽ സ്വന്തമായി സംഗീത ബാൻഡ് രൂപീകരിച്ച ബാലഭാസ്കറിന്റെ നാദിവിസ്മയം തരംഗമായത് വളരെ വേഗത്തിലാണ്

എസ് ഉന്നയിച്ച ആശങ്ക പരിശോധിക്കുമെന്നും ടി

പൊതുമേഖലയിലും സ്വകാര്യമേഖലയിലും ബ്രൂവറികളും ഡിസ്റ്റി ലറികളും വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രി എ

ഗവൺമെന്റ് ബ്രുവറി അനുവദിച്ചതിനെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് മദ്യമെത്തിക്കുന്ന ലോബിയാണെന്ന് അദ്ദേഹം പാലക്കാട്ട് പറ ഞ്ഞു

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സംവിധാനത്തിന്റെ പരിശോധനക്കായി ഇന്ന് രാവിലെ പരീക്ഷണ പറക്കൽ നടത്തി

കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സഊദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങൾ ഉടൻ സർവീസ് പുനരാരംഭിക്കും ഇതിന് കേന്ദ്ര വ്യോമയാന് ഡയറക്ടറേറ്റ് ജനറലിന്റെ അനുമതി ലഭിച്ചതായി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഷെഫാലി ജുനേജ് എംകെ രാഘവൻ എംപിയെ അറിയിച്ചു കരിപ്പൂരിൽ ഹജ്ജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കാനുള്ള തടസ്സം നീങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രിം കോടതി വിധിയിൽ പ്രതിഷേധിച്ച് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നാമജപ ഘോഷയാത്ര നടത്തും

ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്ഥ ബോർഡുമായി ചർച്ചകൾ നടന്നു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടികൾ ജനവിരുദ്ധ നയങ്ങൾക്ക് വിഭജിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി

ഇന്ത്യയിലെ മതന്യൂനപക്ഷ ങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ വളരുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ മെയ്ക്കിംഗ് ഇന്ത്യ സ് മാർട്ട് സിറ്റി പദ്ധതികളെല്ലാം പരാജയമാണെന്നും അദ്ദേഹം കാസർകോട്ട് കുറ്റപ്പെടുത്തി